ഗോതബായ രജപക്സെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു

കാർഡിന്റെ പകർപ്പ് കൈമാറണിമെന്ന നടൻ ദിലീപിന്റെ ആവശ്യം സുപ്രീംകോടതി തുള്ളി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അനുമതി കൊല്ലം കടയ്ക്കല്ടിൽ പ്രവാഹന പരിശോധനയ്ക്കിടെ ന് ലാത്തിയെറിഞ്ഞ് ബ്രെക്ക് യാത്രികന് അപകടമുണ്ടാക്കിയെന്ന സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ ക്രിമിനൽ കേസിൽ കേസ്

കാഴ്ചയുടെ വസന്തമൊരുക്കി അറുപതാമത് സ്കൂൾ യുവജനോത്സവം കാഞ്ഞങ്ങാട് പുരോഗമിക്കുന്നു

എസ് എല്ലിൽ ഇന്ന് ഹൈദരാബാദ് എഫ്

ബംഗളൂരുവിനെ നേരിടും

ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിലാണ് ഇരുനേതാക്കളുടെയും കൂടിക്കാഴ്ച ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയും പ്രസിഡന്റും തമ്മിൽ ചർച്ച ചെയ്യും നേരത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി ഡോ

ഔദ്യോഗിക സന്ദർശനാർത്ഥം ഇന്നലെ ഇന്ത്യയിലെത്തിയ ശ്രീലങ്കൻ പ്രസിഡന്റിന് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി വൈകിട്ട് ഗോതബായ രജപക്സെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തും

്സൂചിക ആശാവഹമായ നിലയിലായതായി അന്തരീക്ഷ ഗുണനിലവാര ഗവേഷണ ഏജൻസിയായ സഫറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു

മലിനീകരണ തോതിൽ വന്ന കുറവ് പ്രഭാത സവാരിക്ക് ഇറങ്ങിയവർക്കും ഗുണകരമായി ശ്വാസതടസ്സം കൂടാതെ പ്രഭാത നടത്തത്തിന് കഴിഞ്ഞതായി പ്രദേശവാസികളിൽ ചിലർ പറഞ്ഞു നടിയെ ആക്രമിച്ച കേസ് കോടതി നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് കേസിലെ പ്രതിയായ നടൻ ദിലീപ് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി

എന്നാൽ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ദിലീപിന് കോടതി അനുമതി നൽകി ജസ്റ്റിസ് എ

ഖാൻവിൽക്കർ അധ്യക്ഷനായ ബഞ്ചാണ് വിധി പറഞ്ഞത് ഇരയുടെ സ്വകാര്യത പരിഗണിച്ചാണ് ദൃശ്യങ്ങളുടെ പകർപ്പ് നൽകാത്തതെന്നും പരമോന്നത കോടതി പറഞ്ഞു ഇക്കാര്യത്തിൽ സുപ്രീംകോടതി ചില മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു കൊല്ലം വാഹന അപകടം ക്രിമിനൽ ക്ട്രേസ് കൊല്ലം കടയ്ക്കലിൽ വാഹന പൂരിശോധനയ്ക്കിടെ ലാത്തിയെറിഞ്ഞ് ബൈക്ക് യാത്രികന് അപ്പകുടമുണ്ടാക്കിയ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ ക്രിമിനൽ കേസെടുത്തു അതേസമയം യുവാവിനെ വീഴ്ത്തിയ പോലീസുകാരുന്ന് സർവ്വീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സാരമായി പരിക്കേറ്റ യുവാവ് തിരുവനന്തപുരം മെഡിക്കൽകോളേജിൽ ചികിൽസയിലാണ്

അദ്ധ്യാപകരുടെയും ഡോക്ടറുടെയും അശ്രദ്ധ മൂലമാണ് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്ന് ജില്ലാ ജഡ്ജി എ ഹാരിസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു

തോമസ് സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ തദ്ദേശസ്ഥാപനങ്ങളെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച മികവിന്റെ ആദ്രം് പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വകുപ്പുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ലക്ഷം രൂപയുടെ പരിധി തദ്ദേശസ്ഥാപനങ്ങൾക്ക് ബാധകമല്ല നിലവിലെ പ്രതിസന്ധിയെ ഒരുമിച്ചു നേരിടാമെന്ന് മന്ത്രി പറഞ്ഞു

ജലീൽ അധ്യാപകർ എപ്പോഴും അറിവന്വേഷകരായിരിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോകെ

ഡിയുടെ മോഡൽ ഫിനിഷിംഗ് സ്കൂളിന്റെ ആഭിമുഖൃത്തിൽ അധ്യാപകർക്കായി റോബോട്ടിക്സ് വിഭാഗത്തിൽ സംഘടിപ്പിച്ച ഫാക്കൽറ്റി ഡെവലപ്മെൻറ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കുട്ടികളുടെ സംശയങ്ങൾ തീർക്കാനാവുന്ന കേന്ദ്രമായി അധ്യാപകർ മാറിയാലേ ആദരവും ബഹുമാനവും കിട്ടൂവെന്നും മന്ത്രി പറഞ്ഞു

വോട്ടർപട്ടിക പുതുക്കൽ വോട്ടർപട്ടിക പുതുക്കുന്നതിന്റെ മുന്നോടിയായുള്ള നിലവിലുള്ള വോട്ടർപട്ടികയിലെ തെററുകൾ തിരുത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മിഷൻ പ്രഖ്യാപിച്ച ഇലക്ടറൽ വോട്ടേഴ്സ് വെരിഫിക്കേഷൻ പ്രോഗ്രാം നാളെ അവസാനിക്കും

നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കേന്ദ്ര സാഹിത്യ അക്കാദമി ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് എന്നിവ പുസ്തകോത്സവത്തിന്റെ ഭാഗമാകും ഇതിനോടനുബന്ധിച്ച് അടുത്ത മാസം നാല് മുതൽ എട്ട് വരെ കൊച്ചി ലിറ്ററച്ചർ ഫെസ്റ്റിവലും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു

കലോൽസവം വിശേഷങ്ങളുമായി കാസർകോട് നിന്നും ആകാശവാണി പ്രതിനിധി ജഗന്നിവാസൻ

ഹൈദരാബാദിലെ ജി